കാണരുതെന്ന് പ്രധാജ്മിന്തി വിധിയെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ നാടിന്റെ ഐക്യവും സമാധാനവും സംരക്ഷിച്ചുള്ളത്ട്വണ്മെന്ന് മുഖ്യമന്ത്രി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ ന് വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ശബരിമലയിൽ അവലോകന യോഗം ചേർന്നു

തമിഴ്നാടിനെ എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കേരളം ഫൈനൽ റൌണ്ടിന് യോഗൃത നേടി

മസ്ജിദ് നിർമ്മാണത്തിനായി സുന്നി വഖഫ് ബോർഡിന് അയോധ്യയിൽ തന്നെ അനുയോജൃമായ സ്ഥലത്ത് അഞ്ച് ഏക്കർ ഭൂമി നല്കണമെന്നും കോടതി വിധിച്ചു കൂടുതൽ വിവരങ്ങളുമായി അനിൽ കുമാർ വോയിസ് ക്ഷേത്ര നിർമാണത്തിനായി മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ ട്രസ്റ്റ് രൂപീകരിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് വിധി ഏകകണ്ഠമായി രുന്നുവെന്ന് ചരിത്രപരമായ വിധി പ്രസ്താവിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു

കേന്ദ്ര ഗവൺമെന്റ് അനുപ്പദിക്കുകയാണെങ്കിൽ നിർമോഹി അഖാഡയ്ക്ക് ട്രസ്റ്റിൽ പ്രാതിന്റിധ്യം നൽകാമെന്നും ആയിരത്തിലധികം പേജുകളുള്ള വിധിന്യായത്തിൽ പറയുന്നു ഭൂമിയുടെ മൊത്തം നിയന്ത്രണം വേണമെന്ന് അഖാഡയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി

അയോധ്യ പ്രധാനമന്ത്രി അയോധ്യ കേസിലെ സുപ്രീം കോടതി വിധി ആരുടേയും ജയമോ പരാജയമോ ആയി കാണരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനവും സംയമനവും പുലർത്തണമെന്നും ദേശഭക്തി നിലനിർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സുപ്രീം കോടതി വിധി രാജ്യത്തെ നീതിനൃായ വൃവസ്ഥയിലുള്ള സാധാരണ ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു

അയോധ്യ കേസിലെ സുപ്രീം കോടതി വിധിയിൽ തൃപ്തരല്ലെന്നും എങ്കിലും വിധി അംഗീകരിക്കുന്നുവെന്നും സ്നി വഖഫ് ബോർഡ് അറിയിച്ചു കോടതി വിധിക്കു പിന്നാലെ കോൺഗ്രസിന്റെ സ്ഥിരം പ്രത്യേക സമിതി അംഗങ്ങൾ പാർട്ടി അധ്യക്ഷ് സ്പോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു

വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചു അയോധ്യ ഗവർണർ അയോധ്യ കേസിൽ ഭരണഘടനാപരമായ വിധി അംഗീകരിക്കാൻ എല്ലാപേരും ബാധ്യസ്ഥരാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുപ്രീം കോടതി വിധിയെ ഏല്ലാവരും ബഹുമാനിക്കണമെന്നും അംഗീകരിക്കണമെന്നും ഗവർണർ പറഞ്ഞു

സുപ്രീം കോടതി വിധിയിലുള്ള പ്രതികരണങ്ങൾ നാടിന്റെ ഐക്യവും സമാധാനവും സംരക്ഷിച്ചുള്ളതാവണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വിധിയുടെ പകർപ്പ് കിട്ടിയ ശേഷം മുസ്ലിം ലീഗ് ഉന്നതതല യോഗം തിങ്കളാഴ്ച ചേരും ശബരിമല മണ്ഡലമകരവിളക്ക് തീർത്ഥാടന്ട കാലത്തിന് മുന്നോടിയായി ശബരിമല തീർത്ഥാടകർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും നട്ടുത്തുന്ന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവലോകനം ച്ചെയ്തു ഇടത്താവളങ്ങളിലെ സൌകര്യങ്ങളെല്ലാം പൂർത്തിയായതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യോഗത്തിൽ പറഞ്ഞു ശുദ്ധജല വിതരണം ചികിത്സാ സൌകര്യം മലിനീകരണ നിയന്ത്രണം ശുചിമുറി സൌകര്യം സൂരക്ഷ യാത്രാ സൌകര്യം റോഡുകളുടെ അറ്റകുറ്റപ്പണി ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൌകര്യം തുടങ്ങിയ കാര്യങ്ങളും യോഗം അവലോകനം ചെയ്തു ചികിത്സാ സൌകര്യം ഉറപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പ് വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

നിലയ്ക്കൽ പമ്പ റൂട്ടിൽ കെ എസ് ആർ ടി

ടി പി രാമകൃഷ്ണൻ ലഹരി പദാർത്ഥങ്ങളുടെ വർധിച്ചുള്ള ഉപയോഗം സമൂഹം അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടേണ്ട വിഷയമാണെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു

പദ്ധതിയുടെ ഭാഗ്മായി ് നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം എന്ന തീവ്രയ്ജ്ഞ ബോധവൽക്കരണ പരിപാടിക്ക് ഗവൺമെന്റ് തുടക്കം കുറിച്ചത്ത്യും മന്ത്രി പറഞ്ഞു

ആനക്കട്ടിക്ക് സമീപം പിടിയിലായ ഇയാളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി മറ്റ് രണ്ടുപേർ കൂടി പിടിയിലായതായി സൂചനയുണ്ടെ ങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല

എ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ തമിഴ്നാടിനെ എതിരില്ലാത്ത ആറ് ഗോളുകൾക് പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പൃന്മാരായാണ് കേരളം യോഗൃത നേടിയത്

വിഷ്ണുവും മുപ്പത്തിമൂന്നാം മിനുട്ടിലും നാൽപത്തിയഞ്ചാം മിനുട്ടിലും ജിതിൻ എം

കൃശ്രൂർ കോർപറേഷന് കീഴിൽ ആധുനിക ടാഗോർ സെന്റിനറി ് പ്റ്റ്ളിന്റെ നിർമാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരൂന്നു് മന്ത്രി തൃശൂർ നഗരത്തിലെ ഗതാഗത കുരുക്കുകൾ ഒഴിഷ്ടുക്കാനും മാലിന്യ സംസ്കരണത്തിനും നിരവധി പദ്ധതികളാണ് ആസ്ട്രിതണം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു തൃശ്ശൂരിലേക്കുള്ള ബൈപ്റ്സ്സ് പീച്ചി വാഴാനി കോറിഡോർ ഉടൻ പണി തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു

വേലൂർ കുടുംബാരോഗൃ കേന്ദ്രത്തിൽ ഇ ഹെൽത്ത് ആശുപത്രിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവ്വഹിച്ചു കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കു മെന്നും മന്ത്രി പറഞ്ഞു

വിവിധ ദ്വീപുകളിലെ ഖാസിമാരുടെയും മദ്രസ കമ്മറ്റികളുടെയും നേതൃത്വത്തിലാണ് സമാപന ചടങ്ങുകൾ നടക്കുക

കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേയ്ക്ക് പ്രിരിക്കയായിരുന്ന ടോറസ്സ് ലോറി കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമിറ്റും തകർന്നു കാറിലുണ്ടായിരുന്ന നാല് പേരും സംഭവസ്ഥലത്തുണ്ട്ട് തന്നെ മരണപ്പെടുകയായിരുന്നു

ഇടുക്കി പത്തനംതിട്ട പാലക്കാട് കാസർകോഡ് ജില്ലകളിലാണ് വനിതാ പോലീസ് സ്റ്റേഷൻ തുടങ്ങുന്നത്

പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഗസറ്റ് വിജ്ഞാപനം വന്നാൽ ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്നും ജില്ലാ പോലീസ് മേധാവി റ്റി നാരായണൻ പറഞ്ഞു മൽസ്യകൃഷി ജലസംഭരണികളിലെ മൽസ്യകൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ മൽസ്യകൃഷി ആരംഭിക്കും സമീപ പ്രദേശമായ കുണ്ടള ആദിവാസി ഗ്രാമത്തിലെ ജനങ്ങളുടെ വരുമാന മാർഗ്ഗം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്

ആറ് മുതൽ എട്ട് മാസം കൊണ്ട് ഒന്നര കി

വളർച്ച എത്തുമ്പോൾ ഇവയെ പിടികൂന്നതിനും വിപണം നടത്തുന്നതിനും കുമ്പള കേന്ദ്രീകരിച്ച് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കും ശാസ്ത്ര സാങ്കേതിക മേള മൂന്നാമത് സംസ്ഥാന ടെക്നിക്കൽ ഫൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള നാളെയും മറ്റന്നാളൂമായി കണ്ണൂരിൽ നടക്കും

നാളെ രാവിലെ മന്ത്രി കെ

ജലീൽ മേള ഉദ്ഘാടനം ചെയ്യും

ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ പ്രദർശന സ്റ്റാളുകൾക്ക് പുറമെ വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെ സ്റ്റാളുകളും ഉണ്ടാകും തിങ്കളാഴ്ച മേള സമാപിക്കും

സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തയായ കെ വി റാബിയയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന പുസ്തക ത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം മന്ത്രി കെ

ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും സഹകരണത്തോടെ റാബിയ കെയർ ഫൌണ്ടഷനാണ് മലപ്പുറം കളക്ട്രേറ്റിൽ പരിപാടി സംഘടിപ്പിച്ചത്

വനത്തിൽ പോകുന്നവരും പിറ്റു പ്രദേശങ്ങളിൽ ഔദ്യോഗിക ചുമതലയുള്ള വനംവകുപ്പ് ക്ലപ്പാലീസ് ആരോഗ്യവകുപ്പ് തുടങ്ങിയ ജീവനക്കാരും വനത്തിൽ പ്പോകുന്ന വിനോദസഞ്ചാരികളും കുരങ്ങു പനിക്കെതിരെ പ്രതിരോർ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു